ഭ്യാസ മേഖലയിൽ കൈവരിക്കാൻ കേരളത്തിനായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഭരണഘടനാ ദിനം

മന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും മന്ത്രി മാത്യു ടി തോമസിന്റെ രാജി ഇന്ന്

കൃഷ്ണൻകുട്ടി നാളെയോ മറ്റന്നാളോ മന്ത്രിസ്ഥാനം ഏറ്റേക്കും കണ്ണൂരിൽ സമാപിച്ച സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ നാലിനങ്ങളിൽ മലപ്പുറം ജേതാക്കൾ അന്തർസർവകലാശാല അത്ലറ്റിക് മീറ്റിൽ മംഗലുരു മുന്നിട്ടുനിൽക്കുന്നു

ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മികച്ച നിലവാരത്തിൽ എത്തിക്കാൻ സംസ്ഥാന ഗവൺമെന്റും യൂനിവേഴ്സിറ്റികളും വലിയ ഇടപെടലുകൾ നടത്തിവരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കാസർകോട് കിനാനൂർ കരിന്തളം ആർട്സ് ആൻഡ് സയൻസ് കോളജ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആരോഗൃ വിദ്യാഭ്യാസ മേഖ ലകളിൽ വൻനേട്ടം കൈവരിച്ചെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന നിലവാരത്തിൽ എത്താൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് മുഖ്യ മന്ത്രി പറഞ്ഞു

മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ ചടങ്ങിൽ അധ്യക്ഷനായി രുന്നു

ദിനാചരണ ത ലേന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരുക്കിയ വിരുന്നുസൽക്കാരത്തിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുത്തു ബിംസ്റ്റെക്ക് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരും ജഡ്ജി മാരും സൽക്കാരത്തിൽ പങ്കുചേർന്നു സാക്ഷരതാ മിഷനും നിയമസഭയും ചേർന്ന് സംസ്ഥാനത്തെ എല്ലാ വാർഡുകളിലും ഭരണഘടനാ സാക്ഷരതാ ജനകീയ വിദ്യാഭ്യാസ പരിപാടി സംഘടിപ്പിക്കും

ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാ ടനം ചെയ്യും ചടങ്ങിന് മുന്നോടിയായി ഭരണഘടനാ സാക്ഷരതാ സന്ദേശ റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്

ഭരണഘടനാ ദിനത്തിന്റെ ഭാഗമായി ഇന്നുരാവിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഭരണഘടനയുടെ ആമുഖവും മൌലിക കർത്തവൃങ്ങളും അസംബ്ലികളിൽ വായിക്കണം ജില്ലാ കലക്ടർമാരും വകുപ്പ് മേധാവികളും ഭരണഘടനയുടെ ആമുഖം വായിക്കാൻ സ്ഥാപനങ്ങളിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പൊതുഭരണവകുപ്പ് നിർദ്ദേശിച്ചു ് നവോത്ഥാനം ഭരണഘടന കുട്ടികളുടെ അവകാശം പരിപാടി രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം കോട്ടൺഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻ്ററി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യും നവോത്ഥാന ചരിത്രത്തെയും ഭരണഘടനയുടെ അന്തസ്സത്തെയെയും കുട്ടി കളുടെ അവകാശങ്ങളെയും കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം വളർത്താനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി സംസ്ഥാ നത്ത് എല്ലാ വിദ്യാലയങ്ങളിലും നവോത്ഥാന ചരിത്ര പ്രദർശനം പ്രഭാഷ ണം ചരിത്രബോധനം റിയാലിറ്റി ഷോ എന്നിവ നടത്തും മന്ത്രി മാത്യു ടി തോമസ് ഇന്ന് രാജിവയ്ക്കും മുഖ്യമന്ത്രി പിണ റായി വിജയനെ നേരിൽകണ്ട് അദ്ദേഹം രാജിക്കത്ത് കൈമാറും തുടർന്ന് ഇടത് നേതാക്കളുമായി കൂടിയാലോചിച്ച് കെ

നാളെയോ മറ്റന്നാളോ കെ

രാവിലെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് പരിഗണിക്കും തുടർന്ന് ചേരുന്ന സംസ്ഥാന സമിതി റിപ്പോർട്ട് ചർച്ച ചെയ്ത് നടപടി എട്ടുത്തേക്കുമെന്നാണ് സൂചന അതിനിടെ ശശിക്കെതിരെ നടപടിയാവശ്യപ്പെട്ട് മുതിർന്ന പാർട്ടി നേതാവ് വി എസ് അച്യുതാനന്ദൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് കത്തു നൽകി ശബരിമല വിഷയത്തിലൂടെ കേരളത്തിലെ മതനിരപേക്ഷത തകർക്കാനാണ് ശ്രമം നടക്കുന്നതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി കോടതി വിധി നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൂത്തുപറമ്പ് രക്താസാക്ഷി ദ്രിനാചരണത്തിന്റെ ഭാഗമായ അനുസ്മരണ സമ്മേളനം കൂത്തുപറമ്പിൽ ഉദ്ഘാടം ചെയ്യുകയായിരുന്നു കോടിയേരി ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോ ടതിയെ സമീപിക്കാൻ ഐ പി എസ് അസോസിയേഷൻ ഒരുങ്ങുന്നു വിധി നടപ്പാക്കുന്നതിന് കോടതിയിൽ നിന്ന് മാർഗനിർദ്ദേശം തേടാനാണ് നീക്കം ഹൈക്കോടതി പരാമർശങ്ങൾ ജോലിയെ തടസ്സപ്പെടുത്തുകയാണെന്നും വിധി നടപ്പാക്കാൻ കൃത്യമായ മാർഗ്ഗനിർദ്ദേശം നൽകണമെന്നും ഹരജി യിൽ ആവശ്യപ്പെടും

അരവണയുടെ വിലയിൽ മാറ്റമില്ല

ജാഫർ ഷെരീഫിന്റെയും നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു

ഇന്നലെ ബെങ്കലുരുവിലെ സ്ഥകാര്യ ആശു പത്രിയിലായിരുന്നു സി

ജാഫർ ഷെരീഫിന്റെ നിര്യാണം

താജ് ട്രൈഡന്റ് ഹോട്ടലുകൾ മുംബൈ സി എസ് ടി റെയിൽവെ സ്റ്റേഷൻ നരിമാൻ ഹൌസ് കാമഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ അക്രമം നടത്തിയ ഭീകരർ രണ്ടിടങ്ങളിൽ ടാക്സികളിലും സ്ഫോടനം നടത്തി ദേശീയ സുരക്ഷാസേനയിലെ മലയാളിയായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധവിഭാഗം മേധാവി ഹേമന്ത് കർക്കർ എന്നിവ രടക്കം ഏതാനും സൈനിക പൊലീസ് ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിക്കു കയും ചെയ്തു കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിലെ ശാസ്ത്രമേള സാമൂഹ്യശാസ്ത്രമേള പ്രവൃത്തിപരിചയമേള ഐ ടി മേള എന്നീ നാലിനങ്ങളിൽ മലപ്പുറം ജേതാക്കളായി

ഗണിതശാ സ്ത്രമേളയിൽ കണ്ണൂർ രണ്ടാം സ്ഥാനക്കാരായി

ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ജംഷെഡ്പൂർ എഫ് സി ഒന്നിനെതിരെ മൂന്നു ഗോളിന് നിലവിലെ ചാമ്പൃന്മാരായ ചെന്നൈയിൻ എഫ് സിയെ തോല്പിച്ചു

മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് മലപ്പു റത്ത് തുടക്കമാകും

ഷ് ഷേഷ് മാർ ് മാ തൊഴിലന്വേഷകർക്ക് അവസരങ്ങൾ ഉറപ്പാക്കാൻ നിശ്ചിത ഇടവേളകളിൽ തൊഴിൽമേളകളും തൊഴിൽ പരിശീലന പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കൊല്ലത്ത് അറിയിച്ചു കുണ്ടറ നിയോജക മണ്ഡലത്തിലെ സമഗ്ര വികസന പദ്ധതിയായ ഇടവും കുടുംബശ്രീ ജില്ലാ മിഷനും ചേർന്ന് സംഘടിപ്പിച്ച ജില്ലാതല മൊബിലൈസേഷനും തൊഴിൽമേളയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

റ്റേഷനിൽ പണികഴിപ്പിക്കുന്ന പ്ലാനിംഗ് ആൻഡ് റിസോഴ്സ് സെന്ററിന്റെ നിർമാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി എ സി മൊയ് തീൻ പറഞ്ഞു കാസർകോട് റിസോഴ് സ് സെന്ററിന്റെ കെട്ടിടനിർമാണത്തിന് തറക്കല്ലിട്ട് സംസാരിക്കുകയായിരന്നു മന്ത്രി ട മനുഷ്യർക്കിടയിൽ ഐക്യമുണ്ടാവാൻ ദുരന്തങ്ങൾ വരെ കാത്തിരിക്കേണ്ട സ്ഥിതിയുണ്ടാകരുതെന്ന് അഖിലേന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു കോഴിക്കോട് കാരന്തൂർ മർകസിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം വിശ്വാസങ്ങളെയും അഭിപ്രായങ്ങളെയും പരസ്പരം ബഹുമാനിക്കാൻ സാധിക്കണമെന്നും കാന്തപുരം പറഞ്ഞു കിർഗിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി കുംബാനി ചെബിക് സുമാലിവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

റൽ സെക്രട്ടറി കെ സുരേന്ദ്രനെ താമസിപ്പിച്ചിരിക്കുന്ന കോഴിക്കോട് സബ് ജയിലിനുമുന്നിൽ ബി ജെ പി പ്രവർത്തകർ നാമജപയജ്ഞം നടത്തി

അതി നിടെ രാത്രി വിശ്രമത്തിനാണ് സുരേന്ദ്രനെ കോഴിക്കോട് സബ് ജയിലിൽ എത്തിച്ചത് ശബരിമലയിലെ നിരോധനാജ്ഞയെ പരിഹസിച്ച മുൻ വിജി ലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് കഥയറിയാതെ ആട്ടം കാണുകയാ ണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു സേനയിൽ മിനിമം അച്ച ടക്കം പോലും പാലിക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥൻ മറുപടി അർഹിക്കു ന്നില്ലെന്നും മന്ത്രി കാഞ്ഞങ്ങാട്ട് പറഞ്ഞു

നാവികസേനാ ദക്ഷിണമേഖലാ കമാൻഡിംഗ് ചീഫ് വൈസ് അഡ്മിറൽ അനിൽകുമാർ ചാവ്ല പരേഡിനെ അഭിവാദൃം ചെയ്യും

എതിരെ നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേറ്റിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് റെയിൽവെ ഡിവിഷണൽ ഓഫീസിലേക്ക് സമ്മർദ യാത്ര തുടങ്ങി യാത്ര കണ്ണൂരിൽ കെ സി ജോസഫ് എംഎൽഎ ഫ്ളാഗ് ഓഫ് ചെയ്തു